ദീർഘദൂരം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് പ്രധാന റോഡുകളിൽ വിശ്രമസൌകരൃം ഒരുക്കുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ ജനമൈത്രി സുരക്ഷാപദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കവചം പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ദേശീയ യുവജന ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചകഴിഞ്ഞ കണ്ണൂരിൽ നടക്കും അന്തരിച്ച ഒമാൻ സുൽത്താനോട് ആദരസൂചകമായി രാജ്യം ഇന്ന് ദുഃഖം ആചരിക്കുന്നു തിരൂവാഭരണഘോഷയാത്ര അൽപസമയത്തിനകം പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും ശബരിമലയിൽ എല്ലാ പ്രായത്തിലുംപെട്ട സ്ത്രീകൾക്ക് പ്രവേ ശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹർജികളിലെ വാദം സുപ്രീം കോടതി ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് മൂന്നാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിന് പുറമെ മുസ്ലിം പാഴ്സി സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങളും കോട തിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു

അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉന്നയിച്ച ഏഴ് ചോദ്യങ്ങളിൽ മാത്രമായിരിക്കും വാദം കേൾക്കുകയെന്നും ഇതിലെ വിധി പന്ന ശേഷം മറ്റു ഹർജികൾ പരിഗണിക്കുന്ന കാര്യം പരിശോധിക്കു മെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അറിയിച്ചു ഹർജി ക്കാരെല്ലാവരും ഒന്നിച്ചിരുന്ന് വാദിക്കേണ്ട കാരൃങ്ങളിൽ ധാരണ യിലെത്തണമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു

രണ്ടാഴ്ച ക്കകം വാദത്തിന് ഒരുക്കങ്ങൾ നടത്താൻ ഹർജിക്കാർക്ക് നിർദേ ശവും നൽകി

യോഗം ഏകോ പിപ്പിക്കാൻ മനു അഭിഷേക് സിംഗ്പി സിഎസ് വൈദ്യനാഥൻ ഇന്ദിരാജയ്സിംഗ് രാജീവ് ്ധപാ്ൻ എന്നീ നാല് മുതിർന്ന അഭിഭാ ഷകരെ കോടതി ചുമതലപ്പെടുത്തി ശബരിമലയെ കുറിച്ചല്ലാതെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ശ്ബ്രിമല തന്ത്രിക്കും വാദിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ദീർഘദൂരം വാഹനമോടിക്കുമ്പോൾ ഡ്രൈവർമാർക്ക് വിശ്രമിക്കുന്നതിന് പ്രധാന റോഡുകളിൽ നിശ്ചിത അകലത്തിൽ സൌകര്യം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഇത് ആശങ്ക സൃഷ്ടിക്കു ന്നു ണ്ടെ ന്നും ബോധവൽക്കരണമാണ് ഇക്കാരൃത്തിൽ പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇക്കാരൃത്തിൽ ഉചിതമായ ഇടപെടൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി എ

നിയമം കർശനമാക്കി ബോധ വൽക്കരണത്തിലൂടെ അപികടം ഇല്ലാതാക്കാ നാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിു മേയർ സുമാ ബാലകൃഷ്ണൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ശ്രീലേഖ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന പോലീസ് ജന്മൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കവചം പദ്ധതിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം മുഖ്യമൃന്തി പിണറായി വിജയൻ കണ്ണൂരിൽ നിർവഹിച്ചു സ്ത്രീകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ഏറെ സഹായകമാണ് കവചം പദ്ധതിയെന്ന് മുഖ്യ മന്ത്രി പറഞ്ഞു ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യം ചുറ്റുപാട് എന്നിവ പരിശോധിച്ച് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്

പദ്ധതി പ്രകാരം സുരക്ഷ ആവശ്യമുള്ള കുട്ടികളുടെ മെൻഡർമാരായി പോലീസുകാർ മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മന്ത്രി രാമചന്ദ്രൻ കടന്ന പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ

സുമേഷ് എന്നിവർ സംബന്ധിച്ചു ദുർബ്ബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമൂഹ്യസുരക്ഷാവകുപ്പും പൊലീസും ചേർന്ന് കവചം പദ്ധതി നടപ്പാക്കുന്നത് മരട് ഫ്ളാറ്റുകൾ പൊളിച്ച വിവരം സംസ്ഥാന ഗവ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും നഷ്ടപരിഹാരം സംബന്ധിച്ച ഫ്ളാറ്റ് ഉടമകളുടെ ഹർജിയും കോടതി പരിഗണിക്കും

എന്നാൽ ഫ്ളാറ്റ് പൊളിച്ച കമ്പനിയാണ് നടപടി എടുക്കേണ്ടതെ ന്നാണ് നഗരസഭയുടെ വാദം പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സംയുക്ത നീക്കം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികളുടെ യേഗം ഇന്ന് ന്യൂഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വിളിച്ച യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസും ബി

ദേശീയ യുവജന ദിനത്തിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ് ശേഷം മന്ത്രി കെ

ശൈലജ കണ്ണൂരിൽ നിർവഹിക്കും

രാവിലെ സൈക്കിൾ റാലി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു ഫ്ളാഷ് മോബ് സന്നദ്ധ രക്തദാന ക്യാമ്പ് എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്

മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പങ്കാളികളിൽ ഒന്നായ ഒമാനോട് ആദരവ് പ്രകടിപ്പിച്ചാണ് ദുഃഖം ആചരിക്കുന്ന ത് രാജ്യം മുഴുവൻ ദേശീയപതാക താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക വിനോദപരിപാടികൾ ഉണ്ടാവില്ലു അതിനിടെ ഹൈതം ബിൻ താരിഖ് അൽ സ്ഥയിദ് ഒമാന്റെ പുതിയ സുൽത്താനായി സത്യപ്രതിജ്ഞ ചെയ്തു വെള്ളിയാഴ്ച അന്തരിച്ച സൂൽത്താൻ ഖാബൂസിന്റെ ബന്ധൂവാണിദ്ദേഹം

ഇരു രാജ്യ ങ്ങളും തമ്മിലെ ബന്ധത്തിന് ദശകങ്ങളുടെ പ്ഴക്കമുണ്ടെന്ന് പ്രധാ നമന്ത്രി പറഞ്ഞു ഇന്ത്യയും ഒമാനും തമ്മിൽ തന്ത്രപ്രധാന പങ്കാ ളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ിസയിദ് ഹൈതവുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇറാഖിൽ ബാഗ്ദാദിന് വടക്ക് യു എസ് സേനാ ആസ്ഥാനമായ അൽബലാദ് വ്യോമതാവളത്തിൽ ഇന്നലെ രാത്രിയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു എട്ട് റോക്കറ്റുകളാണ് ഇവിടെ പൃതിച്ചത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് സൈനികരിൽ ഭൂരിഭാഗവും നേരത്തെ തന്നെ താവളം വിട്ടിരുന്നു പ്രകോപിതരായ ഇറാൻ സൈനൃമാണ് ആക്രമണം നടത്തിയതെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബെ ടിറ്ററിൽ കുറിച്ചു ഗുഹാവട്ടിയിൽ മൂന്നാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന് ഇന്ന് വെങ്കലം

ഖേലോ ഇന്ത്യയുടെ ഭാഗമായി നടക്കുന്ന മൂന്ന് ദ്രീവസത്തെ തദ്ദേ ശീയ ഗെയിംസും സാംസ്കാരിക പരിപാടികളും കേന്ദ്ര കായിക മന്ത്രി കിരൺറിജ്ജു വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും മിസ്റ്റർ കേരള പൊലീസായി റോജി ജഎ സി തെരഞ്ഞെടുക്ക പ്പെട്ടു

കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുളഅള ജില്ലാത്ല ചാമ്പൃന്മാരാണ് മത്സരത്തിൽ പ്രധാനമായും പങ്കെടുത്തത് ഡ്വിജിപി ലോക്നാഥ് ബെഹ്റയും സിനിമാതാരം ഉണ്ണി മുകുന്ദനും ച്ചേർന്ന് മത്സരം ഉദ്ഘാടനം ചെയ്തു ശബരിമല് മകരവിളക്കിന്റെ ഭാഗമായി അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്നതിന് തിരുവാഭരണങ്ങൾ വഹിച്ചു ഘോഷയാത്ര ഇന്ന് പുറപ്പെടും പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചക്ക് ഒരു മണിക്ക് യാത്ര തിരിക്കുന്ന സംഘം മറ്റന്നാൾ വൈകീട്ട് ശബ രിമലയിൽ എത്തും ബുധനാഴ്ചയാണ് പ്രസിദ്ധമായ മകരവിളക്ക്

ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞൻ ഇളയരാജക്ക് ബുധനാഴ്ച മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമ്മാ നിക്കും രാവിലെ ശബരിമല സന്നിധാനത്ത് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ രാജു എബ്രഹാം എംഎൽഎ അധ്യക്ഷനാ കും കോഴിക്കോട് പന്തീരാങ്കാവ് അറപ്പുഴ പാലത്തിന് സമീപം അയ്യപ്പഭക്തർ സഞ്ചരിച്ച കാറും ലോറിയും കൂട്ടിയിടിച്ച് അഞ്ച് പേർക്ക് പരുക്കേറ്റു

ആരുടയും നില ഗുരുതരമല്ല അപകടത്തിനിടെ വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫറോക്കിൽ നീന്നും ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് കുറ്റിപ്പുറം മിനിപമ്പയിൽ ഒഴുക്കിൽപെട്ട ശബരിമല തീർത്ഥാടകരായ രണ്ട് പേരെ ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തി പ്രാഥമിക പരിശ്രോധനകൾക്ക് ശേഷം സംഘം ശബരിമലക്ക് തിരിച്ചു ഗസ്റ്റ് അധ്യാപകനെ പിരിച്ചുവിട്ടതിനെതിരെ കോഴിക്കോട് ചേളന്നൂർ എസ് എൻ കോളെജിൽ വിദ്യാർഥികളുടെ പ്രതിഷേധം പ്രതിഷേധിച്ച വിദ്യാർഥികൾ പ്രിൻസിപ്പലിന്റെ ഓഫിസ് ഉപരോധിച്ചു്

തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുഖ്യ മന്ത്രിയുടെ ഹരിത അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്യും ഭാരതത്തിലെ ജനസംഖൃയുടെ മൂന്നിൽ ഒന്നോളം വരുന്ന യുവജന വിഭാഗം അവരുടെ കർമശേഷി രാഷ്ട്ര പുനർ നിർമാണത്തിനു വേണ്ടി വിനിയോഗിക്കുണ്മെന്ന് അഡ്വ

ഇടുക്കി ജില്ലാ നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖൃത്തിൽ തൊട്ടൂപുഴയിൽ സംഘടിപ്പിച്ച ദേശീയ യുവജന വാരാഘോഷങ്ങളൂടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിലെ പ്രസിദ്ധ്മായ് അറക്കൽ ചിറക്കൽ രാജവംശ ങ്ങളുടെ സംഗമഠ ഇന്ന് ഉച്ച കഴിഞ്ഞ് നടക്കും രണ്ട് തറവാടുകളില്ലെയും പിൻതലമുറക്കാർ ഒത്തുചേരും കണ്ണൂർ ദീനുൽ ഇസ്താം സ്ഭയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് നടക്കുന്ന പരിപാട്ടി ജില്ലാ കലക്ടർ ടി

സുഭാഷ് ഉദ്ഘാടനം ചെയ്യും കളയിക്കാവിള കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച ഓട്ടോ റിക്ഷ പൊലീസ് കണ്ടെത്തി

പാലരുവിയിൽ നിന്ന് പിടികൂടിയവർക്ക് സംഭവവു മായി ബന്ധമില്ലെന്നാണ് പൊലീസ് വിലയിരുത്തൽ